പുതിയ ദേശീയ വിദ്യാഭ്യാസനയം ആധാരമാക്കി നാളെ ചേരുന്ന ഗവർണർമാരുടെ സമ്മേളനത്തെ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അഭിസംബോധന ചെയ്യും

രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് ് ഇരാൻ പ്രതിരോധ മന്ത്രിയു മായി കൂടിക്കാഴ്ച നടത്തി

രാജ്യത്തെ മെട്രോ റയിൽ സർവ്വീസുകൾ നാളെ ഭാഗികമായി പുനരാരംഭിക്കും

അഞ്ച് സംസ്ഥാനങ്ങളിലെ രോഗ പ്രതിരോധ പ്രവർത്തനങ്ങൾ കേന്ദ്രം വിലയിരുത്തി

രാഷ്ട്രപതി രാംനാഥ് കോവിന്ദും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വീഡിയോ കോൺഫറൻസിലൂടെ യോഗത്തെ അഭിസംബോധന ചെയ്യും ഉന്നത വിദ്യാഭ്യാസമേഖലയുടെ പരിവർത്തനത്തിൽ വിദ്യാഭ്യാസനയത്തിന്റെ പങ്ക് എന്ന വിഷയത്തെ ആസ്പദമാക്കി വിദ്യാഭ്യാസ മന്ത്രാലയമാണ് സമ്മേളനം സംഘടിപ്പിക്കുന്നത് സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രിമാർ സർവകലാശാല വൈസ് ചാൻസലർമാർ മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുക്കും

ഇന്തൃയും ഇറാനും തമ്മിൽ വർഷങ്ങളായി നിലനിൽക്കുന്ന ഭാഷാപരവും സാംസ്കാരികവുമായ ബന്ധവും ഇരുനേതാക്കളും എടുത്തു പറഞ്ഞു

വിശദാംശങ്ങളുമായി കരോൾ അബ്രഹാം വോയിസ് ദുരിത കാലത്ത് തടസ്സങ്ങൾ ഇല്ലാത്ത വിദ്യാഭ്യാസം വിദ്യാഭ്യാസ സംവിധാനങ്ങളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തൽ ചെറിയ പ്രായത്തിലുള്ള വിദ്യാഭ്യാസം എന്നീ വിഷയങ്ങളിലെ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനും ചർച്ചചെയ്യാനും ആയാണ് ഇന്നലെ അംഗരാഷ്ട്രങ്ങൾ പ്രത്യേക യോഗം ചേർന്നത്

വിദ്യാഭ്യാസ സംവിധാനത്തെ പരിഷ്കരിക്കാനും നവീകരിക്കാനും ഇന്ത്യ നടത്തുന്ന ശ്രമങ്ങൾ ഇനിയും തുടരുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രമേഷ് പൊക്രിയാൽ നിഷാങ്ക് യോഗത്തിൽ ഉറപ്പുനൽകി വിദ്യാഭ്യാസമേഖലയിലെ നവീകരണ പ്രവ്യർത്തനങ്ങൾക്കായി അംഗ രാഷ്ട്രങ്ങളുമായി സഹകരിച്ച് പ്രവർത്തിക്കാ്ൻ ഇന്ത്യ പ്രതിജ്ഞാ ബദ്ധമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ്വിദൂരവിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യത്തെപ്പറ്റി എടുത്തുപ്പറ്റഞ്ഞ് വിദ്യാഭ്യാസ മന്ത്രിമാർ എല്ലാവർക്കും ഉയർന്ന ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ലഭ്യമാക്കുക പരിശീലകർക്ക് മികച്ച ്യോഗ്യത ഉറപ്പാക്കുക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഡിജിറ്റൽ അടിസ്ഥാന സൌകര്യങ്ങൾ ലഭ്യമാക്കുക തുടങ്ങിയവയുടെ ആവിശ്യക്തയും ചൂിക്കാട്ടി

ആദ്യഘട്ടത്തിൽ ഡൽഹി ചെന്നൈ ബംഗളൂരു അഹമ്മദാബാദ് ഹൈദരാബാദ് എന്നീ നഗരങ്ങളിലാണ് സർവ്വീസ് ആരംഭിക്കുന്നത്

സ്റ്റേഷൻ പ്രവേശന കവാടത്തിൽ തെർമൽ സ്ക്രീനിങ് സാനിറ്റൈസറുടെ ഉപയോഗം എന്നിവ നിർബന്ധമാക്കും

ബെംഗളൂരുവിൽ പർപ്പിൾ ലൈൻ നാളെയും ഗ്രീൻ ലൈൻ ബുധനാഴ്ചയും പ്രവർത്തനം ആരംഭിക്കും

ഇതോടെ കൊച്ചി മെട്രോയുടെ ഒന്നാംഘട്ട നിർമ്മാണ പ്രവർത്തികൾ പൂർത്തിയാകും കോവിഡ് മൂലം നിർത്തിവെച്ചിരുന്ന കൊച്ചി മെട്രോ സേവനങ്ങൾ നാളെ മുതൽ പുനരാരംഭിക്കുന്നതാണ്

സമൂഹത്തിലെ താഴെക്കിടയിൽ ഉള്ളവരുടെ ഉന്നമനത്തിനായി കേശവാനന്ദ ഭാരതി നൽകിയ സംഭാവനകൾ ശ്രദ്ധേയമായിരുന്നുവെന്ന് പ്രധാനമന്ത്രി ടിറ്ററിൽ കുറിച്ചു തതചിന്ത ശാസ്ത്രീയ സംഗീതം തുടങ്ങി വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച വ്യക്തി ആയിരുന്നു അദ്ദേഹമെന്ന് ഉപരാഷ്ട്രപതി ചൂിക്കാട്ടി

അസംസ്കൃത വസ്തുക്കൾ തുടർച്ചയായ പരിശീലനം വിപണിക്ക് പ്രോത്സാഹനം എന്നിവ നൽകി ഈ മേഖലയുടെ ഉത്തേജനമാണ് ലക്ഷ്യമിടുന്നത് സൂക്ഷ്മ ചെറുകിട ഇടത്തരം മന്ത്രാലയമാണ് വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നത്

മഹാരാഷ്ട്ര ഗുജറാത്ത് ജാർഖണ്ഡ് പശ്ചിമ ബംഗാൾ ഡൽഹി തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ രോഗ പ്രതിരോധ നടപടികളാണ് ആരോഗൃ മന്ത്രാലയം വിലയിരുത്തിയത്

ഇന്ന് നടന്ന കോവിഡ് പ്രതിരോധ അവലോകന യോഗത്തിൽ മുഖ്യമന്ത്രി ശിവരാജ് ചൌഹാൻ ഇത് സംബന്ധിച്ച വൃക്തമായ നിർദ്ദേശങ്ങൾ ഉദ്യോഗസ്ഥർക്കും ജനങ്ങൾക്കും നൽകി

അമേരിക്ക ബ്രസീൽ ഇന്ത്യ എന്നീ രാജ്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ കോവിഡ് ബാധിതരുള്ളത്

മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടു് അടുത്ത അഞ്ച് ദിവസം ശക്തമായ മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്

ന്യൂയോർക്കിൽ നടക്കുന്ന മത്സരത്തിൽ ജർമ്മൻ ജ്ോഡികളായ കെവിൻ ക്രാവിയറ്റ്സിനെയും ആൻഡ്രിയാസ് മൈസിനെയുമാണ് ഇവർ പരാജയപ്പെടുത്തിയത് സുമിത് നാഗൽ ഡിവിജ് ശരൺ എന്നിവർ പുറത്തായശേഷം ടൂർണമെന്റിൽ തുടരുന്ന ഏക ഇന്ത്യാക്കാരനാണ് രോഹൻ ബൊപ്പണ്ണ

പരിക്കേറ്റവർക്ക് അടിയന്തര വൈദ്യസഹായം നൽകി